എ യും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാനുമായിരുന്ന പി ടി മോഹനകൃഷ്ണൻ അന്തരിച്ചു സംസ്ഥാനത്ത് മുഴുവൻ കോടതികളെയും ജയിലുകളെയും ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന വീഡിയോ കോൺഫറൻസ് സംവിധാനത്തിന് തുടക്കമായി ഹൈക്കോടതിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ് ഘാടനം നിർവഹിച്ചു

രാജ്യത്ത് ആദ്യമായാണ് ഈ സംവിധാനം നടപ്പിലാക്കുന്നത്

ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കിയത്

മന്ത്രി ഇപി ജയരാജൻ ചടങ്ങിൽ പങ്കെടുത്തു ജമ്മുകശ്മീരിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പുറപ്പെടുവിച്ച എല്ലാ ഉത്തരവുകളും ഒരാഴ്ചയ്ക്കകം പുനപരിശോധിച്ച് പരസ്യപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി ജമ്മുകശ് മീർ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു

കശ്മീരിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദും കശ്മീർ ടൈംസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ അനുരാധ ഭസിനും ഉൾപ്പെടെ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളിൽ ജസ്റ്റിസുമാരായ എൻ വി രമണ ആർ സുഭാഷ് റെഡ്ഡി ബി ആർ ഗവായ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ഇന്റർനെറ്റ് സേവനങ്ങൾ സസ് പെന്റ് ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും പുറപ്പെടുവിക്കുന്ന ഏതൊരുത്തര വും ജുഡീഷ്യറിയുടെ പരിശോധനയ്ക്ക് വിധേയമായി ട്ടായിരിക്കുമെന്ന് ജസ്റ്റിസ് എൻ വി രമണ പറഞ്ഞു

നിരോധനാജ്ഞ ജനാധിപത്യ അവകാശങ്ങൾ നിയമാനുസൃതമായി പ്രകടിപ്പിക്കുന്നത് നിയന്ത്രിക്കാൻ ഉപയോഗപ്പെടുത്ത രുതെന്നും കോടതി പറഞ്ഞു

വാർത്താവിനിമയം ടെലിവിഷൻ സംപ്രേഷണം സൈനിക വാർത്താവിനിമയം എന്നിവയ്ക്കായി കൂടുതൽ പരിധിയും ശേഷിയുമുള്ള ട്രാൻസ്പോണ്ട റുകളാണ് അയക്കുന്നത് രാജ്യത്ത് എല്ലായിടത്തും പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റ് ഇതോടുകൂടി ലഭ്യമാകും സെക്കൻഡിൽ രണ്ട് മെഗാബൈറ്റാണ് നിലവിൽ ഇന്ത്യയിലെ ശരാശരി ഇന്റർനെറ്റ് വേഗം

ഡൽഹിയിലെ താൽക്കത്തോറ സ്റ്റേഡിയത്തിലെ പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രണ്ടായിരത്തോളം വിദ്യാർഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുക്കും പരീക്ഷാ പേ ചർച്ചയുടെ മൂന്നാം പതിപ്പാണ് ഇത്

ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം പരിപാടി ലഭ്യമാണ് ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇടപാടുകാരുടെ വീഡിയോ അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം സാധ്യമാകുന്ന തരത്തിൽ റിസർവ് ബാങ്ക് കെ

ഇടപാടുകാരുടെ അനുമതി യോടെ വീഡിയോ ഡിജിറ്റൽ സങ്കേതം ഉപയോഗപ്പെടുത്താ നാണ് റിസർവ് ബാങ്കിന്റെ അനുമതി മാധ്യമപ്രവർത്തക ഗൌരി ലങ്കേഷിന്റെ കൊലപാതക വുമായി ബന്ധപ്പെട്ട് ഒരാളെക്കൂടി ബംഗലൂരുവിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു

പ്രതിയെ ഇന്ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും ഇന്ന് ലോക ഹിന്ദി ദിനം

ഇതോടനുബന്ധിച്ച് ഒട്ടേറെ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

ഹിന്ദിയും മറ്റ് ഇന്ത്യൻ ഭാഷകളും വളരെ മനോഹരമാണെന്ന് ലോക ഹിന്ദി ദിനത്തിൽ ആശംസ നേർന്ന കേന്ദ്രവാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു

ഗവർണറുടെ പ്രസ്താവനകൾക്കെതിരെ മുഖ്യമന്ത്രി പ്രതികരി ക്കണമെന്നും അദ്ദേഹം ആവശ്യ പ്പെട്ടു രാജ്ഭവന് മുന്നിൽ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ കെ

സി

ആലപ്പുഴ പെരുമ്പളത്തെ കാപ്പിക്കോ റിസോർട്ട് പൊളിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവ്

എഫ് നരിമാൻ അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി വിധിക്കെതിരെ റിസോർട്ട് ഉടമകൾ സമർപ്പിച്ച ഹർജിയിൽ തീരദേശപരിപാലന നിയമം ലംഘിച്ചാണ് റിസോർട്ട് നിർമ്മിച്ചതെന്ന് സുപ്രീംകോടതി വിലയിരുത്തി കൊച്ചി മരടിലെ ഫ്ളാറ്റുകൾ സുപ്രീംകോടതി വിധിയെ തുടർന്ന് പൊളിക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് ഇതിന്റെ ഭാഗമായി പൊലീസും സാങ്കേതിക സമിതിയും അവലോകനയോഗം ചേർന്നു

വളർത്തുമൃഗങ്ങളെയും പരിസരങ്ങളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്

നാളെ പൊളിക്കുന്ന എച്ച് ടു ഒ ആൽഫാസെറീൻ ഫ്ളാറ്റുകളുടെ നിയന്ത്രണം പൊലീസ് ഏറ്റെടുത്തു

സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു മോക്ഡ്രിൽ ഉച്ചകഴിഞ്ഞ് നടക്കും ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കാനാണ് മോക്ഡ്രിൽ സംഘടിപ്പിക്കുന്നത്

വൈകീട്ട് ഏഴിനാണ് മത്സരം തുടങ്ങുന്നത് പരമ്പരയിൽ ഒരു വിജയം നേടിയ ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ് ആദ്യ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു

എൽ ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് ചെന്നൈയിൻ എഫ്

ഹൈദരാബാദിലെ ജി

മുൻ എം എൽ എ യും കോൺഗ്രസ് നേതാവുമായ പി ടി മോഹനകൃഷ്ണൻ പൊന്നാനിയിൽ അന്തരിച്ചു

എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം

ഐ

ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെയും സംസ്ഥാന ബാംബു കോർപ്പറേഷന്റെയും ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്

ടി മോഹനകൃഷ്ണന്റെ നിര്യാണത്തിൽ നിയമസഭാ സ്പീക്കർ പി

രാഷ്ട്രീയ അഭിപ്രായവ്യത്യാസങ്ങൾ മറന്ന് സൌഹൃദങ്ങളുടെ വിശാല ലോകം സംസ്ഥാന രാഷ്ട്രീയത്തിലെ സൃഷ്ടിച്ച ഉ ത്ത മ ഉദാഹരണമായിരുന്നു മോഹനകൃഷ്ണനെന്ന് സ്പീക്കർ പറഞ്ഞു ആർദ്രം ജില്ലാതല ജനകീയ ക്യാംപയിനും ആശാ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പ്രഖ്യാപനവും നാളെ മലപ്പുറത്ത് മന്ത്രി കെ

പരിപാടിയിൽ സത്ജീവിതം പാക്കേജിന്റെയും ആശാവർക്കർമാർക്ക് നടപ്പാക്കിയ ജ്വാല പരിശീലന പരിപാടിയും പാലിയേറ്റീവ് നഴ്സ് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനവും ഇതോടൊപ്പം നടക്കും ഭാരതീയ വിചാര കേന്ദ്രം മുപ്പത്തി ഏഴാം സംസ്ഥാന വാർഷിക സമ്മേളനം ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും പ്രതിനിധി സമ്മേളനം ഉച്ചകഴിഞ്ഞ് വിചാര കേന്ദ്രം ഡയരക്ടർ പി

വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നിർവഹിക്കും

സി ഷൺമുഖദാസ് പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ പുരസ്കാരം മുൻ കേന്ദ്രമന്ത്രി കെ പി ഉണ്ണികൃഷ്ണന് കോഴിക്കോട്ട് മന്ത്രി കെ

ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ സി എച്ച് ഹരിദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളജ് ചെസ്റ്റ് ആശുപത്രിക്ക് സമീപത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിൽ ക്യൂരിയോസ് പാലിയേറ്റീവ് കാർണിവലിന് ഇന്ന് തുടക്കമാവും രോഗീപരിചരണത്തിന് വിദ്യാർഥികളെ പ്രാപ്തരാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കാർണിവൽ സംഘടിപ്പിക്കുന്നത് മൂന്ന് ദിവസത്തെ പരിപാടിയിൽ വിനോദപരിപാടികളും ഭക്ഷ്യമേളയും ഫോട്ടോ പ്രദർശനവും ഉണ്ടായിരിക്കും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ സൌരോർജ്ജ പദ്ധതി ഞായറാഴ്ച ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര

കന്യകമാർ ഉത്തമ ഭർത്താവിനെ ലഭിക്കാനും ഭർതൃമതികൾ ഭർത്താവിന്റെ ദീർഘായുസ്സിനും കുടുംബത്തിന്റെ ഐശ്വരൃത്തിനും വേണ്ടി ഈ ദിവസം തിരുവാതിര പ്രതം ആചരിക്കാറുണ്ട് അരിയാഹാരം ഉപേക്ഷിച്ച് തിരുവാതിര പുഴുക്കും പഴവർഗ്ഗങ്ങളുമായിരിക്കും വ്രതമനുഷ്ഠിക്കുന്നവർ കഴിക്കുന്നത് ശിവ പാർവതീ പരിണയം വിവരിക്കുന്ന തിരുവാതിരക്കളി ഈ ദിവസത്തെ അനുഷ്ഠാന കലാരൂപമാണ് ശിവക്ഷേത്രങ്ങളിലും പാർവതീക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ ഈ ദിവസം നടക്കും

പുതുതായി ആർക്കും രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല